പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കു

ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി മഹാരാഷ്ട്രയിൽ ബിജെപിയും ശിവസേനയും തമ്മിൽ സഖ്യത്തിനും സീറ്റ് വിഭജനത്തിനും ധാരണയായി

പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ മാഘി പൂർണ്ണിമയോടനുബന്ധിച്ചുള്ള പുണ്യസ്നാനം ഇന്ന്

കേരളത്തിലെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ ഭക്തലക്ഷങ്ങളെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങി

ബൾഗേറിയയിലെ സോഫിയയിൽ നടക്കുന്ന സ്ട്രാൻജ മെമ്മോറിയൽ ബോക്സിങ്ങിൽ സ്വർണ്ണപ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും

നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ബനാറസ് ഹിന്ദു സർവ്വകലാൽട്ലയുടെ പുതുതായി നിർമ്മിച്ച മദൻമോഹൻ മാളവ്യ ക്യാൻസ്ർ സെന്റർ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും ഉത്തർപ്രദേശ്ശ് ജർഖണ്ഡ് ബീഹാർ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളെ കൂടാതെ നേപ്പാൾ ഉൾപ്പെടെയുള്ള അയ്യൽരാജ്യങ്ങളിലെ രോഗികൾക്കും കുറഞ്ഞ ചിലവിൽ ക്യാൻസർ ചികിത്സ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതീയ ്ടകേന്ദ്രം

പ്രധാനമന്ത്രി ജനആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുമായി ബനാറസ് ഹിന്ദു സർവ്വകലാശാലയിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

ഇരുപാർട്ടികളും തമ്മിൽ വീണ്ടും ഒരുമിച്ചത് കോടിക്കണക്കിന് ബിജെപി ശിവസേനാ പ്രവർത്തകരുടെ പ്രതീക്ഷകളെയാണ് യാഥാർത്ഥ്യമാക്കിയതെന്ന് ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു ഈ വർഷം അവസാനം നടക്കുന്ന നിയമസഭാതെരഞ്ഞെടുപ്പിലും ഒന്നിച്ച് മൽസരിക്കാൻ ഇരുപാർട്ടികളും തീരുമാനിച്ചു നിരവധി ചെറുപാർട്ടികളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ബിജെപിയും ശിവസേനയും തമ്മിൽ സീറ്റ് ധാരണയിലെത്തിയത്

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് വദ്രയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉറപ്പുനൽകിയതിനെത്തുടർന്ന്ജസ്റ്റിസ് പി

റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് തുടർച്ചയായ രണ്ടാം തവണയാണ് റിസർവ് ബാങ്ക് ലാഭവിഹിതം കേന്ദ്ര ഗവൺമെന്റിന് നൽകുന്നത് റിസർവ് ബാങ്കിന്റെ ഇന്നലെ നടന്ന ബോർഡ് മീറ്റിംഗിലാണ് തീരുമാനം എടുത്തത് യോഗത്തെ ധനകാര്യമന്ത്രി അരുൺജെയ്റ്റ്ലി അഭിസംബോധന ചെയ്തു കഴിഞ്ഞ നാല് വർഷത്തിനിടെ കേന്ദ്രഗവൺമെന്റ് നടപ്പിലാക്കിയ സാമൂഹിക സാമ്പത്തിക പരിഷ്ക്കരണങ്ങളും നയങ്ങളും മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു

ഈ മേഖലയിലെ വ്യവസായവുംനിക്ഷേപിപ്പും സഹകരണവും വർദ്ധിപ്പിക്കാനുളള സാധ്യതകൾ സ്റ്മ്മേളനം പ്രയോജനപ്പെടുത്തണമെന്നും മുന്ത്രീ ആഹ്വാനം ചെയ്തു

രാജ്യത്തെ കപ്പൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും അന്താരാഷ്ട്ര വിപണിയിൽ ഇത്തരം കപ്പലുകളുടെ സാധ്യത കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ മാർഗ്ഗ നിർദേശങ്ങളിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈയിൽ നടക്കുന്ന പ്രാദേശിക സമുദ്ര സുരക്ഷാ സമ്മേളനത്തിൽ നയങ്ങൾക്ക് തുടക്കം കുറിക്കും ഇന്ത്യ ആസിയാൻ മേഖലയിലെ സമുദ്ര തീര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുംകടൽ വഴിയുളള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കപ്പൽ നിർമ്മാണം അപകട സാധ്യതയുളള ചരക്കുകളുടെ ഗതാഗതം സമുദ്രത്തിലെ മലിനീകരണം പാരിസ്ഥിതിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സമ്മേളനത്തിൽ ചർച്ചചെയ്യും

ത്രിവേണി സംഗമത്തിൽ ഇന്നത്തെ സ്നാനത്തിന് ശേഷം ഒരു മാസം നീണ്ടു നിന്ന കുംഭമേളയുടെ ചടങ്ങുകൾ പൂർത്തിയാക്കി കല്പവാസികൾ സ്വദേശത്തേക്ക് മടങ്ങും കുഭമേളയുടെ അവസാന സ്നാനം മഹാശിവരാത്രി ദിനത്തിലാണ് നടക്കുന്നത്

ബൾഗേറിയ മൊറോക്കോ രാജ്യങ്ങൾ സന്ദർശിച്ചത്തിനു ശ്രീഷമാണ് ശ്രീമതി സുഷമ സ്വരാജ് സ്പെയിനിലെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾക്ക് ശ്രീമതി സുഷമ സ്വരാജ് നന്ദി പറഞ്ഞു

ത്രിരാഷ്ട്രസന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മൊറോക്കോ സന്ദർശിച്ച വിദേശകാര്യമന്ത്രി നാല് ധാരണ പത്രങ്ങളിൽ ഒപ്പു വെച്ചു ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ സംയുക്തമായി പ്രവർത്തിക്കാനും യുവജനക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലുമെത്തി ഭീകരപ്രവർത്തനം തടയുന്നതിനും ഉഭയകക്ഷി സഹകരണം വിപുലപ്പെടുത്തുന്നതിനും പ്രതിരോധം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു

ജമ്മു കാശ്മിരിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടുംസംസ്ഥാനം നേരിടുന്ന ഭീകരത്തയും സൌദി മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ ഔദ്യോട്ടുഗിക് ്വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയും സൌദിയുമായുളള ബന്ധം വൃള്ളുന്നതിൽ പാകിസ്ഥാന് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്നും പാകിസ്ഥാനിൽ സൌദി നടത്തുന്ന നിക്ഷേപങ്ങൾ ഇന്ത്യയ്ക്ക് വിഷയമല്ലെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു സൌദി കിരീട്ട്വകാശിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളുമായുളള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത്

ഭക്തലക്ഷങ്ങളെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങി ഭക്തരുടെ സൌകര്യാർത്ഥം സംസ്ഥാന ഗവൺമെന്റും ക്ഷേത്രം ട്രസ്റ്റും വിവിധ സന്നദ്ധ സംഘടനകളും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വർഷത്തെ പൊങ്കാല പൂർണമായും ഹരിത ചട്ടം അനുസരിച്ചാണ് നടപ്പാക്കുന്നത്

സുപ്രധാന മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇരു രാജ്യങ്ങൾക്കും അഭിവൃദ്ധി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അർജന്റീനിയൻ പ്രസിഡന്റ് മൌറീഷ്യോ മാക്രിയും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി സാമ്പത്തിക സാങ്കേതിക ഊർജ്ജ ശാസ്ത്ര സാംസ്കാരിക മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൽ നേതാക്കൾ സംതൃപ്തി പ്രകടിപ്പിച്ചു ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ സമിതിയിൽ പരിഷ്ക്കരണങ്ങൾ വേണമെന്ന് ഇരുനേതാക്കളും ആവശ്യപ്പെട്ടു